പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

കർത്തവൃ നിർവ്വഹണത്തിൽ വീഴ്ച വരുത്തിയ എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടിയെടുക്കുമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രീപാല സിരിസേന

ഏഷ്യാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പി

സിന്ധു സൈനാ നെഹ്വാൾ സമീർ വർമ്മ എന്നിവർക്കിന്ന് ക്വാർട്ടർ പോരാട്ടം

ജെ പി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി വാരാണസിയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായ തരംഗമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശപത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി വാരാണസിയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പാർട്ടി പ്രവർത്തകരാണ് യഥാർത്ഥ സ്ഥാനാർത്ഥികളെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു നല്ല ഭരണം കാഴ്ചവയ്ക്കുന്നതിനായി സത്യസന്ധമായാണ് താൻ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വാരാണസിയിൽ നിന്ന് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി ജനവിധി തേടുന്നത്

ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ സീനിയർ നേതാക്കളായ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി യോഗി ആദിത്യനാഥ് മഹേന്ദ്രനാഥ് പാണ്ഡെ പീയൂഷ് ഗോയൽ എന്നിവർ പ്രധാനമന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു

ഡി എയിലെ പ്രമുഖ നേതാക്കളായ പ്രകാശ് സിംഗ് ബാദൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ്കുമാർ ലോക് ജനശക്തിയിലെ രാം വിലാസ് പാസ്വാൻ ശിവസേനാ നേതാവ് ഉദ്ദവ് താക്കറെ എന്നിവരും സന്നിഹിതരായിരിന്നു

പി നേതാവ് അരവിന്ദ് കെജ്രീപ്പാളിനെതിരെ മൂന്നു ലക്ഷത്തിൽപ്പരം വോട്ടുകൾക്കാണ് ശ്രീന്നുർദ്ദമോദി വരാണസിയിൽ വിജയിച്ചത് കോൺഗ്രസിലെ അജ്യ്റായ് സമാജ്വാദി പാർട്ടിയിലെ ശാലിനി യാദവ് എന്നിവരാണ് ഇത്ത്പണ ശ്രീ

പിവിധ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഊർജ്ജിതമായ പ്രചാരണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ സിദ്ധി ജപൽപൂർ എന്നിവിടങ്ങളിലും മുംബൈയിലെ ബാന്ദ്രാ കുർള കോംപ്ലക്സിലും ഇന്ന് പ്രചാരണ റാലികളിൽ പങ്കെടുക്കും

ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രാജസ്ഥാനിലെ ജലോറിൽ പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ബീഹാറിലെ സമഷ്ടിപൂർ ഒഡീഷയിലെ ബാലസോർ മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയ്യങ്കാർഗ്ഗാന്ധി ഉത്തർപ്രദേശിലെ വാദ്രായിലും ബി

പി നേതാവ് മായ്ാവതി ഉറായ് ജലൌൻ എന്നിവിടങ്ങളിലും പ്രചാരണ റാല്പിക്കള്ള അഭിസംബോധന ചെയ്യും

ജെ

ഡി എന്നീ പാർട്ടികളുമായുള്ള സഖ്യം ശ്ക്തമാണെന്നും തന്റെ പാർട്ടി പകുതി സീറ്റുകൾ ഈ പാർട്ടികൾക്ക് നൽകിയത് ബി ജെ പി ഭരണത്തിൽ തിരിച്ച് വരുകയില്ല എന്നീ ഉറപ്പ് വരുത്താനാണെന്നും സമാജ് വാദി പാർട്ടി മുഖ്യൻ വാർത്താലേഖകരോട് പറഞ്ഞു

ചിത്രം ഇപ്പോൾ പ്രദർശിപ്പിക്കാമോ എന്നതാണ് വിഷയമെന്നും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം എടുത്തിട്ടുണ്ടെന്നും അതിനാൽ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ച് വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ചിത്രത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ തീരുമാനത്തിന് എതിരാണെന്നും നിർമാതാക്കൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു ചിത്രത്തിന്റെ നിർമാതാവ് വിനോദ് കുമാർ നേരത്തെ നൽകിയ ഹർജി പരിഗണിക്കവേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിത്രം കണ്ട് അഭിപ്രായം സുപ്രീംകോടതിയെ അറിയിക്കാൻ നിർദ്ദേശിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മ്യീഷ്ട്ഏറ്റ ഉത്തരവ് തങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്യത്തെ ഹനിച്ചതായി നിർമാതാക്കൾ വാദിച്ചു

വിശദാംശങ്ങളുമായി അർച്ചന

സമിതിയുടെ അധ്യക്ഷനും മുതിർന്ന ജഡ്ജിയുമായ ജസ്റ്റിസ് എസ് എ ബോബ്ഡെയാണ് ജസ്റ്റിസ് മൽഹോത്രയെ നിയമിച്ചത്

ജസ്റ്റിസ് രമണ ചീഫ് ജസ്റ്റിസിന്റെ അടുത്ത സുഹൃത്താണെന്ന കാരണത്താൽ അദ്ദേഹത്തെ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പര്യാതിക്കാരി ബുധനാഴ്ച സമിതിക്ക് കത്ത് നൽകിയിരുന്നു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിക്ക് എതിരെയുളള ഗൂഢാലോചന അന്വേഷിക്കുന്നതിനായി സൂപ്രീംകോടതി മുൻ ് ജ്ജ്ജി എ

അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സി ബി

എന്നാൽ ചീഫ് ജസ്റ്റിസിനെതിരെയുളള ആരോപണം ഏകാംഗ കമ്മീഷൻ അന്വേഷിക്കില്ലെന്ന് പരമോന്നത കോടതി വൃക്തമാക്കി അന്വേഷണം പൂർത്തീകരിച്ചശേഷം ജസ്റ്റിസ് പട്നായിക് റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണമെന്നും വൃക്തമാക്കിയിട്ടുണ്ട്

ചീഫ് ജസ്റ്റിസിനെതിരായുള്ള ആരോപണങ്ങളിൽ ഗുഢാലോചനയുണ്ടെന്ന അഭിഭാഷകരുടെ വാദത്തെ തുടർന്നാണ് കോടതിയുടെ നിരീക്ഷണം

പൊതുസുരക്ഷാ നിയമപ്രകാരം രണ്ടു പേരേയും പൃതടവിലാക്കിയതായി എൻഐഎ പ്രസ്താവനയിൽ അറിയിച്ചു

പ്രത്യേക കോടതിയൽ ഹാജരാക്കിയ ഇവരെ ഏഴ് ദിവസത്തേക്ക് എൻഐയുടെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു ഭീകര പ്രസ്ഥാനത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത കേസിലാണ് ഇരുവരും പിടിയിലായത്

ദക്ഷിണ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയോട് ചേർന്നുള്ള ഭാഗത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്

വരുംദിവസങ്ങളിൽ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളിൽ വലിയ അഴിച്ചുപണി നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു

രാജ്യത്ത് നിന്ന് ഭീകരവാദത്തെ തുടച്ചുനീക്കാനും സമാധനാന്തരീക്ഷം സൃഷ്ടിക്കാനും സുരക്ഷാസേന പ്രാപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു

സംശയിക്കുന്നവരെ പിടികൂടുന്ന നട്ടിട്ടികളും തുടരുകയാണ് ആക്രമണത്തിൽ പങ്കാളികളാണെന്ന് സംശയിക്കുന്ന മൂന്ന് സ്ത്രീകളേയും ഒരു പുരുഷ്ന്ദേയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ പൊലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ശ്രീലങ്കയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ബ്രിട്ടനും ഇസ്രായേലും ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ യ്ാതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്

അതിനിടെ ശ്രീലങ്കൻ പ്രതിരോധ സെക്രട്ടറി ഹേമാസിരി ഫെർണാണ്ടോ രാജിവച്ചു ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി സ്വന്തം നിലയിൽ പിഴവുണ്ടായിട്ടില്ലെങ്കിലും പ്രതിരോധ സെക്രട്ടറി എന്ന നിലയിൽ താൻ മേധാവിയായ ചില സ്ഥാപനങ്ങളുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി

സിന്ധു സൈനാ നെഹ്വാൾ സമീർ വർമ്മ എന്നിവൂർക്കിന്ന് ക്വാർട്ടർ പോരാട്ടം ചൈനയിലെ വുഹാനിലാണ് മത്സരങ്ങൾ നട്ടക്കുന്നത്

ജപ്പാന്റെ ലോക നാലാം നമ്പർതാരം അക്കാനെ ൃതിമാഗുച്ചിയെയാണ് കാർട്ടറിൽ സൈന നേരിടുന്നത്